വിദ്യാർത്ഥികൾക്കുള്ള അറിയിപ്പു മുതൽ സർട്ടിഫിക്കറ്റുകൾ വരെ ഓൺലൈനിൽ ലഭിക്കും

ദേശീയ സ്കൂൾ സീനിയർ മീറ്റിൽ കേരളം ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

കേരളത്തെ നിക്ഷേപസൌഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന അസന്റ് നിക്ഷേപക സംഗമം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംരംഭക യൂണിറ്റുകൾ തുടങ്ങാൻ വരുന്നവർ നാടിനെ സഹായിക്കാൻ വരുന്നവരാണെന്ന് ധാരണ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും വേണം

സംസ്ഥാനത്ത് നിക്ഷേപക യൂണിറ്റുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

ഉദ്യോഗസ്ഥർ ഇതുസംബന്ധിച്ച് നിശ്ചിത്സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും മുഖ്യന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഇൻവെസ്റ്റ് കേരള ഉട്ട്ഗ്സ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു

രാജ്യത്തെ വ്യവസായ സൌഹൃദ സംസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു

വൃവസായ അനുമതിക്കുള്ള നിയമങ്ങളിലും ചട്ടങ്ങളിലും കാതലായ ഭേദഗതി വരുത്തിയെന്നും മന്ത്രി പറഞ്ഞു

മുഖ്യമന്ത്രി നവോത്ഥാനം നവോത്ഥാന കാലഘട്ടത്തെ സാഹിത്യകാരന്മാരും സാമൂഹിക പരിഷ്ക്കർത്താക്കളും പ്രതിഭാശാലിത്ചും കൊണ്ട് ഏറെ ശ്രദ്ധേയരായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അക്കാലങ്ങളിൽ സ്ഥുമൂഹ്ത്തിൽ നിലനിന്നിരുന്ന ഇരുട്ട് അകറ്റാനാണ് എഴുത്തുകാരും സാഹിത്യകാരന്മാരും ശ്രമിച്ചത് കൊച്ചിയിൽ കൃതി പുസ്ത്രകോ്ത്സവത്തോടനുബന്ധിച്ച് നടത്തിയ നവകേരളം നവോത്ഥാനം സഹകരണം എന്നവിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങളെ ആർക്കും തകർക്കാനാകില്ലെന്നും അതിന്റെ കൂടെയാണ് കേരളമെന്നും നവോത്ഥാന നായകരുടെ ഇടപെടലുകളെ ചരിത്രം രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിദ്യാർത്ഥികൾക്കുള്ള അറിയിപ്പു മുതൽ സർട്ടിഫിക്കറ്റുകൾ വരെ ഓൺലൈനിൽ ലഭിക്കും

പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സൌജന്യ പരിശീലനം നൽകുന്നതിനായുള്ള ഏഴ് പുതിയ പരിശീലന കേന്ദ്രങ്ങൾ ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് ഉത്തരവായി

ഇതിനുപുറമെയാണ് പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ഏഴ് കേന്ദ്രങ്ങൾ

കെ ബാലൻ മുസ്ലീം ലീഗ് നേതാവ് പി കെ ഫിറോസ് ഉന്നയിച്ച ആരോപണം അടിസ്ഥാന രഹിതമാണെന്ന് മന്ത്രി എ

മന്ത്രിയുടെ ഓഫീസിലെ അസിസ്റ്റൻറ് പ്രൈവറ്റ് സെക്രട്ടറിയായ മണിഭൂഷണന്റെ നിയമനം അനധികൃതമായിരുന്നു എന്നാണ് പി കെ ഫിറോസ് ആരോപിച്ചത് മതിയായ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് മണിഭൂഷണനെ നിയമിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു

അഗ്നിശമന സേനയ്ക്ക് വേണ്ടി അത്യാധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ര്ക്ഷ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രവർത്തകനായിരുന്ന ഷുക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ സി

എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ സി ബി ഐ

തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് സി ബി

ഇതിനുപുറമെ പി ജയരാജൻ ടി

രാജേഷ് എം

എന്നിവർക്കെതിര ഗൂഢാലോചനാകുറ്റവും ചുമത്തിയിട്ടുണ്ട്

ബി ഐ യ്ക്ക് വിട്ടത്

ഉന്നതവിജയം നേടി ് സ്കൂൾ പഠനം പൂർത്തിയാക്കിയവർക്ക് പുതിയ് ത്യാമ്സ സൌകര്യം ഒരുക്കുന്നതി നായാണ് തേജോമയ ആഫ്റ്റ്റർ കെയർ ഹോം സ്ഥാപിക്കുന്നത്

വിവിധ പ്രായത്തിലുള്ളവർ നിർഭയ ഷെൽട്ടർ ഹോമുകളിൽ താമസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും ഓരോ വിഭാഗത്തിനും പ്രത്യേക പരിചരണം നൽകുന്നതിന്റെ ഭാഗവുമായാണ് സമർത്ഥരായ കുട്ടികൾക്ക് വേണ്ടി മാത്രം തേജോ മയ ഹോം ആരംഭിക്കുന്നത്

അടിയന്തിരമായി നടപടികൈക്കൊളളാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മിഷണർമാർക്ക് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര അതോറിറ്റി നിർദേശം നൽകി

മാർച്ചിനകം പത്തു കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാവുമെന്നാണ് കണക്കാക്കുന്നത്

അടുത്ത സാമ്പത്തിക വർഷം പത്തു കോടി തൊഴിൽ ലഭ്യമാകും വിധം ലേബർ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെന്റിനു മുന്നിൽ അംഗീകാരത്തിനായി സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ലേബർ ബഡ്ജറ്റിന് ആനുപാതികമായി തൊഴിൽദിനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ദേശീയതലത്തിൽ കേരളം ഒന്നാമതാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു

വൈകിട്ട് കലാപരിപാടികളുടെ ഉദ്ഘാടനം നടൻ മമ്മൂട്ടി നിർവ്വഹിക്കും

മീറ്റിന്റെ രണ്ടാം ദിനം രണ്ട് സ്വർണം കൂടി നേടിയ കേരളം പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മീറ്റിന്റെ രണ്ടാം ദിനം രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവുമാണ് കേരളം നേടിയത് ഇതോടെ കേരളത്തിന് ആകെ മൂന്ന് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവുമായി